കുന്നംകുളത്ത് തുടക്കം

ആദ്യമത്സരം ഇന്ന് ഡൽഹിയിൽ

കോാഴിക്കോട്ട് നടക്കുന്ന അന്തർദേശീയ നാളികേര സമ്മേളനം ഇന്ന് വൈകീട്ട് സമാപിക്കും

മന്ത്രിമാരായ തോമസ് ഐസക്ക് കെ കൃഷ്ണൻകുട്ടി വി എസ് സുനിൽകുമാർ എന്നിവർ വിവിധ പരിപാടികളിൽ സംസാരിക്കും ഇന്ന് മൂന്ന് സെക്ഷനുകളിലായാണ് സമ്മേളനം

ട്രയൽ റൺ നടത്തുന്ന അവസരത്തിൽ പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്ന് ജില്ലാകളക്ടർ അറിയിച്ചു